ക്ഷണക്കത്തിന് ലഭിച്ച മറുപടി ചൂഷണം ചെയ്യാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയുടെ നടപടി രാഷ്ട്രീയ മാന്യതയല്ലെന്ന് പ്രതിപക്ഷ് നേതാവ് രമേശ് ചെന്നിത്തല ദേശീയ സീനിയർ വോളിബോൾ വനിതാ ഫൈനലിൽ കേരളം ഇന്ന് റെയിൽവെയെ നേരിടും

വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഒരി ക്കലും കേരളത്തിന് നേരിടേണ്ടി വന്നിട്ടില്ലെന്നും ഗവർണർ തിരു വനന്തപുരത്ത് പറഞ്ഞു ഇല്ലാത്ത വിഷയത്തിന്റെ പേരിലാണ് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നതെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞു പൌരത്വ ഭേദഗതി നിയമം പൂർണ്ണമായും കേന്ദ്രത്തിന്റെ പരി ധിയിൽ വരുന്നതാണ് സംസ്ഥാനത്തിന് പ്രശ്നത്തിൽ ഇടപെടാ നാവില്ല പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരണമെന്ന ചരിത്ര കോൺഗ്രസിന്റെ ശുപാർശ ക്രിമിനൽ ലക്ഷ്യത്തോടെ ആയിരു ന്നുവെന്ന് ഗവർണർ വിലയിരുത്തി കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിക്കരുതെന്നും വിവരങ്ങൾ കൈമാറരുതെന്നും സെമിനാർ നിർദേശം നൽകിയതായി സംശയിക്കുന്നുവെന്നും അദ്ദേഹം പറ ഞ്ഞു സംസ്ഥാനത്തിന് ആവശ്യമായ കാര്യങ്ങൾക്ക് സമയം ചെല വഴിക്കുകയാണ് ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ട തെന്ന് ഗവർണർ നിർദേശിച്ചു ലോക കേരളസഭയിൽ പ്രവാസികളുടെ സഹായത്തെ മുഖ്യ മന്ത്രി പിണറായി വിജയൻ പ്രകീർത്തിച്ചു

തിരുവനന്തപുരത്ത് ലോക കേരളസഭയുടെ രണ്ടാം ദിവസത്തെ സമ്മേളനത്തെ അഭിസംബോ ധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

വിദേശ നിക്ഷേപം പാഴായി പോകാതെ പ്രവാസികൾക്കും നാടിനും ഉപയോഗപ്പെടുന്ന രീതി യിലുള്ള പദ്ധതി ആരംഭിക്കുമെന്നും ഫ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേ ഷൻ സെന്റർ പ്രവാസി വനിതാ സെൽ സഹകരണ സംഘം തുടങ്ങിയ പദ്ധതികൾ പ്രവാസി ക്ഷേമം ഉറപ്പുവരുത്തുന്നതാ ണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പൌരത്വ ഭേദ ഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഗവ

പ്രമേയം പാസാക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ടെങ്കിലും അതിന് സ്ഥകാര്യ ബില്ലിന്റെ വില പോലും ഇല്ലെന്ന് കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു ഭരണഘടനയെ വെല്ലുവിളിക്കാൻ സംഘടിപ്പിക്കുന്ന പരി പാടിയിൽ പങ്കെടുക്കില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി

കത്തയച്ചാൽ മറുപടി നൽകുന്നത് രാഹുൽ ഗാന്ധിയുടെ ഔന്ന തൃമാണെന്നും അതിനെ മുതലെടുക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ശരിയല്ലെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു ഒന്നാം ലോക കേരളസഭയുടെ തീരുമാനങ്ങൾ നടപ്പാക്കാത്ത തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസും പ്രതിപക്ഷവും സഭ ബഹി ഷ്കരിച്ചത് കേരളസഭ ധൂർത്തിന്റെ പര്യായമായി മാറിയിരിക്കുക യാണെന്നും ചെന്നിത്തല ആരോപിച്ചു ദേശീയ കാർഷിക അവാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയിൽ വിതരണം ചെയ്യും

വൈകീട്ട് പുതുതായി ആരംഭിക്കുന്ന് അഞ്ച് ഡി ആർ ഡി ഒ യുവ ശാസ്ത്രജ്ഞ ലാബു കൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും ശാസ്ത്രജ്ഞരുമായി സുംവ്ദിക്കുന്ന പ്രധാനമന്ത്രി ലാബും അനുബന്ധ സൌകര്യങ്ങളും സന്ദർശിക്കുകയും ചെയ്യും ഡി ആർ ഡി ഒ വികസിപ്പിച്ച പുതിയ ഉൽപ്പന്നങ്ങൾ ശാസ്ത്ര ജ്ഞർ അദ്ദേഹത്തെ പരിചയപ്പെടുത്തും

ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാര ങ്ങളും അദ്ദേഹം സമ്മാനിക്കും ശാസ്ത്രവും സാങ്കേതിക വിദ്യ കളും ഗ്രാമവിക്സനത്തിന് എന്ന ആശയത്തിലൂന്നിയാണ് ഇത്ത വണ ശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ അവഹേളനാപ രമായ പരാമർശം നടത്തിയതിന് തമിഴ് സാമൂഹ്യ പ്രവർത്തകൻ നെല്ലൈ കണ്ണൻ അറസ്റ്റിലായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കഴിഞ്ഞ ശനിയാഴ്ച തിരുനെൽവേലിയിൽ സംഘടിപ്പിച്ച റാലി യിലായിരുന്നു വിവാദ പരാമർശം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഗൌരവമേറിയ മൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് തിരുനെൽവേലി പൊലീസ് കേസെടുത്തത്

ആന്ധ്രപ്രദേശ് കർണാടക തെലങ്കാ ന മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് ഗോവ ഹരിയാന രാജ സ്ഥാൻ ഝാർഖണ്ഡ് ത്രിപുര സംസ്ഥാനങ്ങളെ ഒരു ക്ലസ്റ്ററാക്കി യാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മുന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

വൈ മുൻഗണന കാർഡുടമകൾക്ക് ഏത് സംസ്ഥാനത്തുനിന്നും റേഷൻ വാങ്ങാം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലിനായി കേരളത്തിൽ വന്നു താമസിക്കുന്ന്വർക്കും തൊഴിലിനായി ഇതര സംസ്ഥാന ങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്കും എ

വൈ മുൻഗ ണനാ വിഭാഗം കാർഡുകളാണെങ്കിൽ റേഷൻ കാർഡ് മാറ്റാതെ തന്നെ ധാന്യവിഹിതം കൈപ്പറ്റാൻ സാധിക്കുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത പുതുവത്സരത്തിൽ സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവിൽപ്പന റിപ്പോർട്ട് ചെയ്തു

ഏറ്റവും അധികം മദ്യം വിറ്റത് തിരുവനന്തപുരം ജില്ലയി ലാണ്

ഇന്നലെ സെമിയിൽ നേരിട്ടുള്ള സെറ്റുകൾക്ക് മഹാരാ ഷ്ട്രയെ പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ സ്ഥാനമുറ പ്പിച്ചത് പുരുഷവിഭാഗം സെമിയിൽ റെയിൽവെ കേരളത്തെ എതിരി ല്ലാത്ത മൂന്ന് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ഫൈനലിൽ തമിഴ്നാടാണ് റെയിൽവെയുട്ടെ എതിരാളി ലൂസേഴ്സ് ഫൈനലിൽ കേരളം ഇന്ന് കർണാടകയെ നേരിടും

വനിതകൾക്ക് പ്രവേശനം പൂർണമായും സൌജന്യമാണ്

മന്നം ജയന്തി സമ്മേളനം ചങ്ങനാശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു സി രാധാകൃഷ്ണനും ഡോ കെ എം സി നായരും മന്നം അനുസ്മരണ പ്രഭാഷണം നടത്തി

സുരക്ഷ സംബന്ധിച്ച ഉറപ്പുകൾ പാലിച്ചിട്ടില്ലെന്നാരോപിച്ച് ഫ്ളാറ്റിന്റെ സമീ പവാസികൾ നിരാഹാര സത്യഗ്രഹം രണ്ടാം ദിവസവും തുടരുക യാണ് പൊളിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന് സമീപത്തെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പൈപ്പ് ലൈനിന് സുരക്ഷ ഏർപ്പെടു ത്തുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് പൌരത്വനിയമഭേദഗതിക്കെതിരെ കെ മുരളീധരൻ എംപി നയിക്കുന്ന ദേശരക്ഷാ ലോംഗ് മാർച്ച് ഇന്ന് വൈകീട്ട് കുറ്റ്യാടിയിൽ നിന്നും ആരംഭിക്കും

നാളെ രാവിലെ നാദാപുരത്ത് നിന്നും പുനരാരംഭിക്കുന്ന മാർച്ച് വൈകീട്ട് വടകരയിൽ സമാപിക്കും കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി യാത്ര ചെയ്തവ രുടെ എണ്ണത്തിൽ വൻ വർധന

കരിപ്പൂർ വിമാനത്താവളത്തിലെ ആധുനിക ലാന്റിംഗ് സംവി ധാനം ഇന്ന് പ്രവർത്തനക്ഷമമാകും നാളെ പുലർച്ചെ മുതൽ വിമാ നങ്ങൾ പുതിയ സംവിധാനത്തിന്റെ സഹായത്തോടെയായിരിക്കും ലാന്റ് ചെയ്യുക അട്ടപ്പാടി വനംവകുപ്പ് ജീപ്പ് അപകടത്തിൽപ്പെട്ട് ചികിത്സയി ലായിരുന്ന അട്ടപ്പാടി റെയ്ഞ്ച് ഓഫീസർ ശർമ്മിള മരിച്ചു

പി അനുസ്മരണ സമ്മേളനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും

സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ

എ ഖാദർ എം

എ മുൻ മന്ത്രി ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും മലമ്പുഴ അണക്കെട്ടിൽ പ്രളയകാലത്ത് അടിഞ്ഞു കൂടിയ മണ്ണിന്റെയും മണലിന്റെയും അളവ് തിട്ടപ്പെടുത്താൻ സർവ്വേ ആരംഭിച്ചു ഡാമിന്റെ സംഭരണശേഷി എത്ര കുറഞ്ഞിട്ടുണ്ടെന്ന് കണ്ടെത്തുകയാണ് ജലസേചന വ്കുപ്പിന്റെ സർവ്വേയുടെ ലക്ഷ്യം മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷി ക്കാൻ സമയപരിധി ഈ മാസം ആറുവരെ നീട്ടി

സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന ഇന്ത്യ എന്ന റിപ്പബ്ലിക്ക് ക്യാംപയിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശേരി നിർവ്വഹിച്ചു ക്യാംപയിന്റെ ഭാഗമായി കലാജാഥ ഭരണഘടനാ സാക്ഷരതാ ക്ലാസുകൾ സംഗമങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ സംഘ ടിപ്പിച്ചിട്ടുണ്ട്

പ്ലാസ്റ്റിക് പേനകൾ പുനരുപയോഗത്തിന് വേണ്ടതരത്തിൽ സംസ്കരിച്ചെടുക്കുന്ന രീതി കുട്ടികളെ പരിചയപ്പെടുത്താനാണ് പദ്ധതി നടപ്പാക്കുന്നത്

ഇന്ന് രാവിലെയാണ് നീണ്ടകാലമായി ചികിത്സയിലായി രുന്ന അദ്ദേഹത്തിന്റെ അന്ത്യം